രാജ്യം ആര് ഭരിക്കുമെന്ന് ഇന്നറിയാം

പതിനേഴാം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ജനവിധി പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഒന്നര മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാ നഫലത്തിനായി രാജ്യം കണ്ണും കാതും തുറന്നുവെച്ചിരിക്കുകയാണ്

മൂവായിരത്തോളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു

തമിഴ്നാട്ടിലെ വെല്ലൂർ സീറ്റിൽ വ്യാപകമായ പണസ്വാധീനം കണ്ടെത്തിയതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെര ഞ്ഞെടുപ്പും പൂർത്തിയായി ലോകത്തെ മുൻനിര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ എട്ടിനാ രംഭിക്കും ഒരു മണിക്കൂറിനകം തന്നെ ലീഡ് നില സംബന്ധിച്ച സൂചനകൾ ലഭ്യമായിത്തുടങ്ങും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എൻ ഡി എക്ക് അനു കൂലമാകുമ്പോൾ ജനഹിതം മറിച്ചായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും മഹാസഖ്യവും ദേശീയതലത്തിലെ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാനത്തെ ജനവിധിയും ഏറെ നിർണ്ണായകമാണ്

ഡി എഫിന് മുൻതൂക്കം പ്രവചിച്ച എക്സിറ്റ്പോൾ ഫലങ്ങളെ തള്ളിയ എൽ ഡി എഫ് തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ്

ജെ പിയും എൻ ഡി എയും പാർലമെന്റി ലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യ അക്കൌണ്ട് തുറക്കാനാവുമെന്ന ആത്മവി ശ്വാസത്തിലാണ്

ദർവ്വെടെട പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വോട്ടെണ്ണൽ നിർത്തിവെയ്ക്കണമെന്ന നിർദ്ദേശം തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ തുടങ്ങിയാൽ അവസാനിക്കും വരെ തുടരാൻ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായി അദ്ദേഹം തിരുവനന്തപു രത്ത് പറഞ്ഞു സമാന്തരമായി പോസ്റ്റൽ ബാലറ്റുകളും എണ്ണും വോട്ടിംഗ് യന്ത്രങ്ങളിലെ എണ്ണൽ പൂർത്തിയായാൽ വിവി പാറ്റ് സ്ലിപ്പുകൾ നിശ്ചിത മാർഗ്ഗനിർദ്ദേശ പ്രകാരം എണ്ണിത്തുടങ്ങും

വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്രസേനയെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചു ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെ ടുത്തിയിട്ടുണ്ട് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

തെരഞ്ഞെടുപ്പി നിടെ അക്രമം വ്യാപകമായ പശ്ചിമ ബംഗാളിൽ പ്രത്യേക കർശന സുരക്ഷ ഏർപ്പെടുത്തി കേരളത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സംസ്ഥാന പൊലീസ് സേന പ്രവേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിട്ടു ണ്ട് കേന്ദ്രസേനക്ക് മാത്രമാണ് സുരക്ഷാ ചുമതല

വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ നൂറ് മീറ്റർ പരിധിക്ക് പുറ ത്താണ് ലോക്കൽ പൊലീസിന്റെ അധികാര്യ പരിധി

പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെയാണ് കമ്മീഷൻ ഈ ആവശ്യം തള്ളിയതെന്ന് കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്പി ന്യൂഡൽഹിയിൽ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെ ടുപ്പിൽ പരാജയപ്പെടുന്നതിന്റെ നിരാശ മൂലമാണ് പ്രതിപക്ഷ പാർട്ടികൾ വിവി പാറ്റ് വിഷയം ഉന്നയിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ ഡൽഹി യിൽ അഭിപ്രായപ്പെട്ടു രുട്ടിട്ട്ട്ട്ട്ട്ട തെരഞ്ഞെടുപ്പ് ഫലം ശ്രേതാക്കളിലെത്തിക്കാൻ ആകാശവാണി വാർത്താ വിഭാഗം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ടര മുതൽ അരമണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനു കൾ പ്രക്ഷേപണം ചെയ്യും ലീഡ് നിലകളും വിശകലനങ്ങളും ഇതോടൊപ്പം ലഭ്യമായിരിക്കും

വി എം വിവിപാറ്റ് ഗോഡൌൺ മുഖ്യ തിരഞ്ഞെ ടുപ്പ് ഓഫിസർ ടിക്കാറാം മീണ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാട നം ചെയ്തു

ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം തേടി ഉചിതമായ ഫോറങ്ങളെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി അവധിക്കാല ബെഞ്ച് നിർദ്ദേ ശിച്ചു ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതുവരെ ഫ്ളാറ്റുകൾ പൊളിക്കു ന്നത് ഒഴിവാക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം നൽകണ മെന്നും ആവശ്യപ്പെട്ട് ഫ്ളാറ്റ് ഉടമകൾ നൽകിയ ഹർജിയാണ് കോടതി തള്ളി യത് ദർശ്രമാ ഇരിട്ടി പുന്നാട്ടെ യാക്കൂബ് വധക്കേസിൽ അഞ്ചുപേരെ തലശേരി കോടതി ജീവപര്യന്തം കഠിനതടവിന് ശിക്ഷിച്ചു അൻപതിനായിരം രൂപവീതം ഇവർ പിഴ അടയ്ക്കുകയും വേണം

പി ആർ എസ് എസ് പ്രവർത്ത കരായ അഞ്ച് പേരെയാണ് സി

എം പ്രവർത്തകനായിരുന്ന യാക്കൂ ബിനെ വധിച്ച കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്

എസ് എസ് നേതാവ് പത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ പതിനൊന്നുപേർ കുറ്റക്കാര ല്ലെന്നും കോടതി വിധിച്ചു

എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥികളിൽ നിന്നും നിർബന്ധിത ധനശേഖരണം നടത്തുന്നതും കുറ്റകരമാണ് ഇത്തരം പരാതികളിൽ കമീഷൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പി സുരേഷ് തിരുവനന്തപുരത്ത് അറിയിച്ചു

രദ്ദേഷ്ടങ കോഴിക്കോട് ജില്ലയിലെ കാരശേരി പഞ്ചായത്തിൽ ചെള്ളുപനി കണ്ടെ ത്തിയതിനെ തുടർന്ന് ആരോഗൃവകുപ്പും പഞ്ചായത്തും പ്രതിരോധ പ്രവർത്ത നങ്ങൾ ശക്തമാക്കി നേരത്തെ വയനാട് ജില്ലയിലെ ആദിവാസി കോളനിക ളിൽ റിപ്പോർട്ട് ചെയ്ത ചെള്ളുപനി ആദ്യമായാണ് കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തിയത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം നേരിട്ട് പകരില്ല

രോഗം കണ്ടെത്തിയ മായങ്ങൽ കോളനിയിൽ ഇന്ന് ഫോഗിംഗ് ഉൾപ്പെടെ പ്രതിരോധ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറി യിച്ചു രദ്ദേഷ്ടങ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കാമെന്ന തികഞ്ഞ പ്രതീക്ഷയു മായി ടീം ഇന്ത്യ ഇംഗ്ലണ്ടിലെത്തി

അടുത്തമാസം അഞ്ചിന് ദക്ഷിണാഫ്രിക്ക്ക്കെതിരെയാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം

ഫൈനലിൽ മണിപ്പൂർ പൊലീസിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത്

ഹയർ സെക്കന്ററി വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും

കുടുംബശ്രീ ബാലസഭയുടെ ബാലപാർലമെന്റ് തിരുവനന്തപുരത്ത് പഴയ നിയമസഭാ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സി ജോർജ്ജ് എം

മുസ്ലിം യൂത്ത്ലീഗിന്റെ മാർച്ചിനൊ ടുവിലാണ് കല്ലേറുണ്ടായതെന്ന് പൊലീസ് അറിയിച്ചു

പി പ്രവീഷിന്റെ വീടിനുനേരെ എറിഞ്ഞ ബോംബ് മുറ്റ ത്തുവീണ് പൊട്ടിയതിനാൽ അപകടം ഒഴിവായി

ചെറുവാടി സ്വദേശി ഷബീബാണ് മരിച്ചത്